സബർമതി ആശ്രമത്തിൽ പ്രധാന മൂന്ത്രി ഉദ്ഘാടനം ചെയ്തു

വിപുലമായ പരിപാടികൾ ൻംസ്ഥാന തല ഉദ്ഘാടനം വൈകിട്ട് ഗവർണർ നീർപ്പ് ഹിക്കും

സമർപ്പണത്തിന് തുടക്കമായി

പ്രഖ്യാപനം ഇന്ന് ബിജെപിയുടെ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും

എഫ് മണ്ഡലം കൺവെൻഷനുകൾക്കും തുടക്കം

ഇന്ന് തുടക്കമാകും

ഇതോടനുബന്ധിച്ച് രാജ്യത്തുടനീളം പ്രദർശനങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യാ സമരം മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്ര തുടങ്ങി സ്വാതന്ത്ര്യസമരത്തിലെ സുപ്രധാന ഏടുകളാണ് പ്രദർശനത്തിനുള്ളത്

നാന്തിരീക്കൽ വേലുത്തമ്പി ദളവ സ്മാരക സമുച്ചയത്തിൽ നിന്ന് പദയാത്ര നടത്തി

പത്രികയും സത്യവാങ്മൂലവും ഓൺലൈനായി സമർപ്പിക്കാമെന്നതാണ് ഇത്തവണത്തെ പ്രധാന മാറ്റം കെട്ടിവയ്ക്കാനുള്ള തുകയും ഓൺലൈനായി അടയ്ക്കാം ഓൺലൈൻ പത്രികകളുടെ പ്രിന്റ് നേരിട്ടെത്തിക്കണം

സ്ഥാനാർത്ഥിക്കൊപ്പം രണ്ടുപേർ മാത്രമേ പാടുള്ളൂ

എഫ് ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചപ്പോൾ യു ഡി

ഡി എ മുന്നണികൾ അവസാന വട്ട സ്ഥാനാർത്ഥി നിർണയ തിരക്കിലാണ് കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വൈകിട്ടോടെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചേക്കും

ഡി എഫിൽ ആർ

എ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നാളെയുണ്ടാകുമെന്നാണ് സൂചന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന്റെ മണ്ഡലം കൺവെൻഷനുകൾക്കും പൊതുയോഗങ്ങൾക്കും തുടക്കമായി

ഡി എഫ് കേരളാ കോൺഗ്രസ് എമ്മിന് നൽകിയ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ കേരളാ കോൺഗ്രസ് എം തന്നെ മൽസരിക്കുമെന്ന് പാർട്ടി അദ്ധ്യക്ഷൻ ജോസ് കെ മാണി പറഞ്ഞു മുഹമ്മദ് ഇക്ബാലായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് അദ്ദേഹം അറിയിച്ചു

അതിർത്തി പരിശോധന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തോടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് കടൽ വഴി മദൃവും ലഹരി വസ്തുക്കളും സംസ്ഥാനത്തേക്ക് കടത്തുന്നത് തടയാൻ ് എക്സൈസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും കടലിൽ പ്പര്ിശോധന ശക്തമാക്കി വിഴിഞ്ഞം പുല്ലുവിള പൂവാർ പൊഴിയൂർ ്തമിഴ്നാട് അതിർത്തി മേഖലയായ തെക്കെ കൊല്ലംക്ടോട് എന്നീ മേഖലകളിലാണ് ഇന്നലെ പട്രോളിംഗ് നടത്തിയത്

രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലാണ് ജില്ലാ കളക്ടർ ഇക്കാര്യം അറിയിച്ചത് വെബ് കാസ്റ്റിംഗിന് സാങ്കേതിക തടസ്സമുള്ള ബൂത്തുകളിൽ സി സി ടി

ജില്ലയിൽ മൂന്ന് പൊതുനിരീക്ഷകർ രണ്ട് തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകർ ഒരു പോലീസ് നിരീക്ഷകൻ എന്നിവരെയാണ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളത് ജില്ലകളിലൂടെ കോഴിക്കോട് ഇൻട്രോ കോഴിക്കോട് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നണികൾ സജീവമാക്കി

വിശദീകരണം നൽകിയത് ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു

ക്യേന്ദ്ര ഏജൻസികൾക്കെതിരെ കേസെടുക്കാനുള്ള സംസ്ഫ്റ്റ് സർക്കാർ നീക്കത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതിക്ടിക്കുകയായിരുന്നു അദ്ദേഹം

കോഴിക്കോട് വാക്സിൻ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കൊയിലാണ്ടി നാദാപുരം താലൂക്ക് ആശുപത്രികളിലും ഒളവണ്ണ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും കോവാക്സിൻ ഉപയോഗിച്ചുള്ള കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നടക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു മറ്റു സർക്കാർ ആരോഗ്യകേന്ദ്രങ്ങളിലും തെരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികളിലും കോവിഷീൽഡ് ഉപയോഗിച്ചുള്ള കുത്തിവയ്പ്പും നടക്കും

സ്വർണ്ണവില കുറഞ്ഞു